അതീവ ജാഗ്രത തുടരുന്നു

തമിഴ്നാട്ടിലും രാത്രി കർഫ്യൂ ഇന്ന് നിലവിൽ വരും

ആറാംഘട്ട വോട്ടെടുപ്പ് വ്യാഴാഴ്ച നടക്കും

എല്ലിൽ ഇന്ന് രാത്രി ഡൽഹി കൃാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം

പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ കഴിഞ്ഞ ദിവസം വിലയിരുത്തിയിരുന്നു കോവിഡ് വാക്സിൻ ലഭ്യത സംബന്ധിച്ച് നിർമാതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചർച്ച നടത്തും വൈകിട്ട് ആറ് മണിക്ക് വീഡിയോ കോൺഫറൻസിലൂടെയാണ് യോഗം ഇന്നലെ ഡോക്ടർമാരുമായും ഫാർമ കമ്പന്റി മേധാവികളുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തിയിരുന്നു നേരത്തെ വിവിധ വകുപ്പുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥിരൂമാ്യും രാജ്യത്തെ കോവിഡ് സ്ഥിതി സംബന്ധിച്ച് പ്രധാനമന്ത്രി ആശ്യവിനിമയം നടത്തി

കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾക്ക് സൈനിക സഹായം ലഭൃമാകുന്നത് സംബന്ധിച്ചായിരുന്നു ചർച്ച സംസ്ഥാനങ്ങൾക്ക് വേണ്ട സഹായം മുഖ്യമന്ത്രിമാരുമായി ബന്ധപ്പെട്ട് ലഭ്യമാക്കണം ഇതിനായി ബന്ധപ്പെട്ട സേനാ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്താനും നിർദേശമുണ്ട്

കോവിഡ് സാഹചര്യങ്ങൾ വിലയിരുത്താൻ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിങ് ഇന്ന് സൈനിക തലവൻമാരുമായി ചർച്ച നടത്തും

വിശദാംശങ്ങളുമായി അക്ഷയ് ഷാജി

രോഗ പരിശോധനക്കൊപ്പം കോവിഡ് വാക്സിൻ കുത്തിവെപ്പും രാജ്യത്ത് പുരോഗമിക്കുകയാണ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അദ്ധ്യക്ഷതയിലുള്ള ഉന്നതതല യോഗത്തിലാണ് തീരുമാനം ആദ്യ ഘട്ടത്തിൽ സൌജനൃമായി വാക്സിൻ നൽകും

നിലവിൽ രണ്ടാഴ്ചത്തേയ്ക്കാണ് കർഫ്യൂ തീരുമാനിച്ചിരിക്കുന്നതെങ്കിലും സ്ഥിതിഗതികൾ ഇടയ്ക്ക് വിലയിരുത്തും

നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ ട്രാൻസ്പോർട്ട് ബസുകളുടെ സമയം പുനക്രമീകരിച്ചു

അടുത്ത തിങ്കളാഴ്ച പുലർച്ചെ അഞ്ച് മണിവരെയാണ് അടച്ചുപൂട്ടൽ നിയന്ത്രണങ്ങൾ എന്നാൽ അവശ്യ സേവനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും അടിയന്തിര സാഹചരൃങ്ങൾക്കായി പുറത്തിറങ്ങുന്നവരെയും തടയില്ല ഡൽഹിയിലെ സ്കൂൾ വേനൽ അവധി ജൂൺ ഒൻപത് വരെയാക്കി പുനഃക്രമീകരിച്ചിട്ടുണ്ട് രാജ്യസഭാ ഉദ്യോഗസ്ഥരോട് വീട്ടിലിരുന്നു ജോലി ചെയ്യാനും നിർദേശം നൽകി

ഓക്സിജൻ ലഭൃതകുറവ് പരിഹരിക്കാനും സർക്കാർ നടപടിയെടുത്തുവരികയാണ്

മൻമോഹൻ സിങിന്റെ ആരോഗ്യനില്ല്യെപ്പറ്റി ആരോഗ്യവിദഗ്ധരുമായി ചർച്ച നടത്തിയതായി കേന്ദ്രമിത്രി ്ഹർഷ്വർദ്ധൻ മൻമോഹൻ സിങിന്റെ ആരോഗ്യനില തൃപ്തീകരമായി തുടരുന്നുവെന്നും മികച്ച ചികിത്സാസൌകരൃങ്ങളാണ് അദ്ദേഹത്തിന് ലഭൃമാക്കിയിട്ടുള്ള തെന്നും കേന്ദ്രമന്ത്രി ട്വീറ്റ് ചെയ്തു

ഇതിനുശേഷം കോവിഡ് പോരാളികൾക്ക് പുതിയ ഇൻഷറൻസ് പോളിസി നിലവിൽ വരും

വിശദാംശങ്ങളുമായി അക്ഷയ് ഷാജി

ഭരണകക്ഷിയായ എ ഐ ടി

സംസ്ഥാൻ മന്ത്രിമാരായ ഉജ്ജാൽ ബിശ്വാസ് സ്വപൻ ദെബ്നാഥ് ചന്ദ്രീമൃഭട്ടാചാര്യ സി

ഐ എം നേതാവ് തൻമോയ് ഭട്ടാചാര്യ ബീ ജെ

ദേശീയ വൈസ് പ്രസിഡന്റ് ദുംദും ഉത്തർ എന്നിവരും ബദൂറിയയിൽ നിന്ന് മത്സരരംഗത്തുണ്ട്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

നിലവയ വനത്തിൽ ഇന്ന് രാവിലെ നടന്ന ഏറ്റുമുട്ടലിലാണ് മല്ലപാര സ്വദേശിയായ കോസ എന്ന മാവോയിസ്റ്റിനെ വധിച്ചതെന്ന് ദന്തേവാഡ പോലീസ് മേധാവി അഭിഷേക് പല്ലവ് വ്യക്തമാക്കി

മയൂരിനെ റെയിൽവേ മന്ത്രി പീയുഷ് ഗോയലും അഭിനന്ദിച്ചു

സ്വർണ്ണവില കുറഞ്ഞു

പാർട്ടിയുടെ ഒന്നാം സെക്രട്ടറിയും രാജ്യത്തെ പ്രസിഡന്റുമായിരുന്ന റൌൾ കാസ്ട്രോ സ്ഥാനം ഒഴിഞ്ഞ ഒഴിവിലാണ് നിലവിലെ പ്രസിഡന്റ് കൂടിയായ ഡയസിന്റെ നിയമനം

വ്യോമയാനത്തിലിരുന്ന് മറ്റൊരു ഗ്രഹത്തിൽ ഒരു എയർ ക്രാഫ്റ്റ് പറത്തുന്നത് ഇതാദ്യമായാണ്